ജി റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് രാജ്യസഭയിൽ വെച്ചു

സംസ്ഥാനത്ത് പ്രളയബാധിത മേഖലകളിൽ ജപ്തി നട പടി പാടി ല്ലെന്ന് ബാങ്കു ക ളോട് നിർദേ ശി ക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

എഫിന്റെ കേരള സംരക്ഷണജാഥയ്ക്ക് നാളെ തുട ക്കം

്ഥ ഡൽഹി കരോൾബാഗിലെ തീപിടിത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് രാജ്യസഭയിൽ വെച്ചു

റിപ്പോർട്ടിന് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നൽകിയിരുന്നു റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു

പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എം പി മാർ പാർലിമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും

അതേസമയം രാജ്യസഭാ സമ്മേളനം ഏതാനും ദിവസത്തേക്ക് കൂടി നീട്ടിയേക്കും സുപ്രധാന സഭാ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണിത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയും ബജറ്റ് നടപടികളും രാജ്യസഭയിൽ പൂർത്തിയാക്കാനായിട്ടില്ല ജമ്മുകശ്മീരിലെ ബുദ്ഗാമിൽ ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാ ദികളെ സൈന്യം വധിച്ചു

സംഭവസ്ഥ ലത്തുനിന്നും ആയുധങ്ങളും സ്ഫോടകവസ്തുക്കളും സൈന്യം പിടിച്ചെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം പ്രദേശത്ത് റെയ്ഡ് ചെയ്തത് സംസ്ഥാനത്ത് പ്രളയബാധിത മേഖലകളിൽ ജപ്തിനടപടി പാടില്ലെന്ന് ബാങ്കുകളോട് നിർദേശിക്കാൻ ഗവൺമെന്റ് തീരുമാ നിച്ചു

ഗവൺമെന്റ് പ്രഖ്യാ പിച്ചു മൊറട്ടോറിയം നിലനിൽക്കെ ജപ്തിനടപടിയുമായി സഹ കരണ ബാങ്കുകളടക്കം മുന്നോട്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ പണിമുടക്കിയ ജീവനക്കാർക്ക് പൊതുഖജനാവിൽ നിന്ന് ശമ്പളം നൽകാൻ എടുത്ത തീരുമാനത്തോട് യോജിക്കാനാ കില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ജനമഹായാത്രക്കിടെ പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുക യായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ ധാർമികതയും നൈതികതയും കൈമോശം വന്ന പാർട്ടിയായി സി

പിണറായി ഗവൺമെന്റ് കേരളത്തെ സ്റ്റാലിനിസ്റ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു സിപിഐഎം നേതാക്കൾക്ക് എതിരായ സിബിഐയുടെ കുറ്റപത്രം കണ്ണൂരിൽ അക്രമം അവസാനിപ്പിക്കാനുള്ള ആദ്യ പടിയായി മാറുമെന്നും മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടു ജനമഹായാത്ര ഇന്ന് പാലക്കാട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും ഷുക്കൂർ വധക്കേസിൽ കൊലക്കുറ്റം ചുമത്തപ്പെട്ട പി ജയരാ ജനെ സി

എം കണ്ണൂർ ജില്ലാസെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റേണ്ട കാര്യമില്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് കേട്ട് പ്രവർത്തിക്കേണ്ട കാര്യം സി

എമ്മിനില്ലെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു

പി ഗവൺമെന്റിനെ പുറത്താക്കൂ രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി എൽ ഡി

തിരുവനന്തപുരത്ത് നിന്നാരംഭിക്കുന്ന തെക്കൻ മേഖലാജാഥയ്ക്ക് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണനും മഞ്ചേശ്വരത്തുനിന്നാരംഭിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നേതൃത്വം നൽകും തിരുവനന്തപുരത്ത് സി

ഐ ജനറൽ സെക്ര ട്ടറി സുധാകർ റെഡ്ഡിയും മഞ്ചേശ്വരത്ത് സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ജാഥ ഉദ്ഘാടനം ചെയ്യും ഇരു ജാഥകളും അടുത്തമാസം രണ്ടിന് തൃശൂരിൽ സമാപിക്കും ലോക കേരള സഭയുടെ ഭാഗമായ മിഡിൽ ഈസ്റ്റ് റീജ്യണൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ യു

വെള്ളി ശനി ദിവസങ്ങളിൽ ദുബൈയിലാണ് ലോക കേരള സഭ ചേരുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ ഒളിവിൽ കഴിയുന്ന നെടുമങ്ങാട് പള്ളി മുൻ ഇമാം ഷ ഫീഖ് അൽ ഖാസിമിക്ക് വേണ്ടി പൊലീസ് അന്വേഷണം ഊർജി തമാക്കി ഇയാളുടെ നാടായ ഈരാറ്റുപേട്ടയിലും സുഹൃത്തുക്ക ളുടെ വീടുകളിലും പൊലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇയാൾക്കെതിരെ പോക്സോ ചുമത്തി കേസെടുത്തിട്ടുണ്ട്

അങ്കണവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും കേന്ദ്രഗ വൺമെന്റ് പ്രഖ്യാപിച്ച ഓണറേറിയം നടപ്പാക്കി ഉത്തരവിറങ്ങി

ഡൽഹി കരോൾബാഗിലെ ഹോട്ടലിലുണ്ടായ തീപിടിത്ത ത്തിൽ മരിച്ച മൂന്ന് മലയാളികളുടെയും മൃതദേഹം നാട്ടിലെത്തി ച്ചു കൊച്ചി ചേരാനെല്ലൂർ സ്വദേശികളായ നളിനി അമ്മ മക്കളായ വിദ്യാസാഗർ ജയശ്രീ എന്നിവരുടെ മൃതദേഹങ്ങളാണ് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചത്

ഒരു സ്ത്രീയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു തീപിടിത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനു ബ ന്ധിച്ച സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു ഇന്നലെ രാത്രി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിച്ചത് ഇതോടൊപ്പം വിശേഷാൽ പൂജയും നടന്നു

ആറ്റുകാൽ പൊങ്കാല മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു എഡിഎമ്മിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും തിരുവനന്തപുരത്ത് ചേർന്ന പൊങ്കാല അവലോകന യോഗത്തിൽ മന്ത്രി നിർദേശിച്ചു ഇന്ന് ലോക റേഡിയോ ദിനം

സംവാദം സഹിഷ്ണുത സമാധാനം എന്നിവയാണ് ഈ വർഷത്തെ റേഡിയോ ദിനാചരണത്തിന്റെ പ്രമേയം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന മാധ്യമമാണ് റേഡിയോ സാംസ് കാരിക വകുപ്പും സർവോദയ മണ്ഡലവും സംയുക്തമായി നടത്തുന്ന രക്തസാക്ഷ്യം പരിപാടിയുടെ ഭാഗമായി ഇന്ന് മലപ്പുറം തവനൂർ പാപ്പിനിക്കാട് മൈതാനത്ത് സാഹിത്യ സമ്മേളനം നടക്കും ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിലിറ്റ് നൽകിയ ടി പത്മനാഭനെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം ഉണ്ടാകും നാളെ രാവിലെ മഹാത്മാഗാന്ധിയെ വീണ്ടും വീണ്ടും വധിക്കുന്നതെന്തിന് വിഷയത്തിൽ സെമിനാർ എ

ഉച്ചക്കു ശേഷം വനിതാ സമ്മേളനം തൃശൂർ കലക്ടർ ടി

അനുപമ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് പ്രൊഫ

മധുസൂദനൻ നായർ കാവ്യാലാപനം നടത്തും

മലയാളത്തിന്റെ പ്രിയകവി ഒ

കുറുപ്പിന്റെ മൂന്നാം ചരമ വാർഷികത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ നടക്കുകയാണ് കവിയുടെ ജന്മഗൃഹമായ കൊല്ലം ചവറയിലെ നമ്പ്യാടിക്കൽ വീട്ടിൽ ഒരുക്കിയ ഒ എൻ വി യുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ചും കവിതകൾ ആലപിച്ചും നിരവധിപേർ കവിയുടെ സ്മരണ പുതുക്കി വിവിധ സാംസ്കാരിക സംഘടന കളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ അനുസ്മരണ യോഗങ്ങളും ഒ എൻ വി കവിതാലാപനവും നടക്കും

മുറ്റത്തെ മുല്ല പദ്ധതി എല്ലാ വാർഡുകളിലും നടപ്പാക്കിയ മങ്കര പഞ്ചായത്ത് ജില്ലയിലെ ആദ്യ കൊള്ള പലിശ രഹിത പഞ്ചായത്താകാൻ ഒരുങ്ങുകയാണെന്ന് സഹകരണ വകുപ്പ് അധികൃതർ പാലക്കാട്ട് അറിയിച്ചു

ദുരന്തബാധിതർക്കു നഷ്ടപരിഹാരം നൽകാതെ പ്ലാച്ചിമടയിൽ പുതിയ സംരംഭം തുടങ്ങാനുള്ള കോള കമ്പനിയുടെ നീക്കം അനുവദിക്കരുതെന്നും സമിതി ആവശ്യപ്പെട്ടു

ശശിധരൻപിള്ള അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനത്തോടനു ബന്ധിച്ച് വനിതാ വികസന കോർപറേഷൻ കുടുംബശ്രീ നൂതന സംരംഭങ്ങൾക്ക് ഏർപ്പെടുത്തിയ പ്രത്യേക വായ്പാ പദ്ധതിയുടെ ആദ്യ സഹായം പെരിന്തൽമണ്ണ നഗരസഭയിലെ കുടുംബശ്രീ സംരംഭമായ മാലാഖ സൊലൂഷൻസിന് കൈമാറി

പാലക്കാട് വാളയാറിൽ മുല്ലപ്പൂ കെട്ടിനൊപ്പം ഒളിപ്പിച്ചുകടത്തിയ ഒരു ലക്ഷം രൂപയുടെ കഞ്ചാവുമായി യുവതിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ ആഞ്ഞിലക്കൽ സ്വദേശി പ്രീതയാണ് ഏകസൈസ് സ്പെഷൽ സ്കോഡിന്റെ പിടിയിലായത് ലഹരിക്കടിപ്പെട്ടവരെ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരി ച്ചുകൊണ്ടുവരാൻ കിടത്തിച്ചികിത്സയടക്കമുള്ള ലഹരിവിമോചന കേന്ദ്രം കോഴിക്കോട് ബീച്ച് ഗവൺമെന്റ് ജനറൽ ആശുപത്രി യിൽ സജ്ജമായി അടുത്ത ബുധനാഴ്ച മന്ത്രി ടി പി രാമകൃഷ്ണൻ ചികിത്സാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും

ബ്രസീലിയൻ യുവതിയെ ട്രെയിനിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇരിട്ടി സ്വദേശികളായ മൂന്ന് യൂവാക്കൾ കാഞ്ഞങ്ങാട്ട് പൊലീസ് പിടിയിലായി ഇരിട്ടി കിളിയന്തറയിലെ സി

അർഷാദ് മുഹ മ്മദ് കെയ്ഫ് വി

വിഷ്ണു എന്നിവരെയാണ് ഹോസ്ദുർഗ് പൊലീസ് പിടികൂടിയത് ഇന്നലെ മംഗലൂരുവിൽ നിന്ന് കോയ മ്പുത്തൂരിലേക്ക് പുറപ്പെട്ട ഇന്റർസിറ്റി എക്സ്പ്രസിൽ ബ്രസീലി യൻ യുവതിയെയും കൂടെയുണ്ടായിരുന്ന പാലക്കാട് സ്വദേശി യെയും ശാരീരികമായി ഉപദ്രവിച്ചതായാണ് കേസ് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യവസായിയായ ടി സി

തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത് ബിജു രാധാകൃഷ്ണൻ സരിത

നായർ എന്നിവരാണ് കേസിലെ പ്രതികൾ

ഇതിനായി മൂന്ന രക്കോടി വിനിയോഗിക്കുമെന്ന് ജില്ലാപഞ്ചായത്ത് പ്രസിഡണ്ട് ബാബു പറശ്ശേരി കോഴിക്കോട്ട് പറഞ്ഞു തിങ്കളാഴ്ച ചാത്തമം ഗലം ആർ ഇ